കൊറോണ ചേരുന്ന സാർക്ക് രാജ്യങ്ങളുടെ സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും

കേരളത്തിൽ കൊറോണക്കെതിരെ ജാഗ്രത തുടരുന്നു പുതുതായി ആർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടില്ല

ഗതാഗത സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഗവൺമെന്റിനോട് പാർലമെന്ററി സമിതി

മധ്യപ്രദേശിൽ കമൽനാഥ് സർക്കാർ നാളെ വിശ്വാസവോട്ട് തേടണമെന്ന് ഗവർണർ ലാൽജി തണ്ടൻ

വീഡിയോ കോൺഫറൻസിംഗ് മുഖേന ചേരുന്ന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും

കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ശക്തമായ നയത്തിന് രൂപം നൽകാൻ സാർക്ക് നേതാക്കൾ ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി വെള്ളിയാഴ്ച അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ചർച്ച നടത്താമെന്ന ആശയവും അദ്ദേഹം ട്വിറ്ററിലൂടെ പങ്കു വച്ചിരുന്നു മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള എല്ലാ വഴികളും ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

ഇന്ത്യാക്കാരെ ഒഴിപ്പിക്കാൻ സൌകര്യം ഏർപ്പെടുത്തിയതിന് ഇറാന് അദ്ദേഹം നന്ദി പറഞ്ഞു ദൌതൃം വിജയിപ്പിക്കുന്നതിൽ ഇന്ത്യൻ സ്ഥാനപതിയും മറ്റ് നയതന്ത്ര ഉദ്യോഗസ്ഥരും എല്ല സഹായങ്ങളും ചെയ്തിരുന്നു ഇറാനിൽ കൊറോണ രോഗം വ്യാപകമാണ്

ആദ്യ സംഘത്തെ വ്യോമസേനാ യാത്രാ വിമാനത്തിൽ ചൊവ്വാഴ്ചയാണ് കൊണ്ടു വന്നത്

ഇവരെ രണ്ടാഴ്ചത്തെ നിരീക്ഷണത്തിനായ് ഡൽഹിയിലെ ഐ

ഇന്ത്യാക്കാരെ തിരിച്ചെത്തിക്കാൻ സഹായിച്ച എയർ ഇന്ത്യയ്ക്കും ഇറ്റാലിയൻ ഗവൺമെന്റിനും അദ്ദേഹം നന്ദി അറിയിച്ചു

പ്രത്യേക അതിർത്തി ചെക്പോസ്റ്റുകുൾ ഒഴികെ ഇന്ത്യ ബംഗ്ലാദേശ് ഇന്ത്യ നേപ്പാൾ ഇന്ത്യ ഭൂട്ടാൺ ഇന്ത്യ മ്യാൻമർ അതിർത്തികളിലെ എല്ലാ യാത്രക്കളുട് ഇന്നലെ രാത്രി മുതൽ തന്നെ നിരോധിച്ചതായി ആഭൂന്തര മന്ത്രാലയം അറിയിച്ചു പാകിസ്ഥാനുമായി അതിർത്തി ് പങ്കിടുന്ന മേഖലകളിൽ എല്ലാ യാത്രകളും നാളെ മുതൽ നിരോധിച്ചു എന്നാൽ ഭൂട്ടാൻ ബംഗ്ലാദേശ പൌരന്മാർക്കുള്ള വിസ രഹിത പ്രവേശന സൌകര്യം തുടരും

ചെക്ക് പോസ്റ്റുകളിലും വിമാനത്താവളങ്ങളിലും ട്രെയിനുകളിലും പരിശോധന ശക്തമാക്കി പരിശോധനയ്ക്ക് പോലീസ് സഹായം ഏർപ്പെടുത്തി ട്രെയിനുകൾ സംസ്ഥാന അതിർത്തി പിന്നിട്ട് ആദ്യം നിർത്തുന്ന സ്ഥലത്ത് യാത്രക്കാരെ പരിശോധിക്കാൻ സംവിധാനമൊരുക്കി

പുതിയ നിർദ്ദേശങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാനല്ലെന്നും നാടിന്റെ സുരക്ഷയ്ക്ക് ഇതാവശൃമാണെന്ന് മനസിലാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു

മൂന്നാറിൽ നിന്നെത്തിയ യു

സ്വദേശിയെയാണ് തിരിച്ചറിഞ്ഞത് ഇതേതുടർന്ന് വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരെയും ആശുപത്രി നിരീക്ഷണത്തിലേക്ക് മാറ്റാൻ നടപടി ആരംഭിച്ചതായി സിയാൽ അധികൃതർ അറിയിച്ചു

വ്യോമയാന ഉപരിതല ദേശീയപാത ജലഗതാഗതം റെയിൽവേ വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിലാണ് സുരക്ഷ ഒരുക്കേണ്ടത് മികച്ച അന്താരാഷ്ട്ര നിലവാരമുള്ള സുരക്ഷയാണ് വേണ്ടത് ഇതിനുള്ള മാർഗ്ഗങ്ങൾ ആരായാൻ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളിൽ ഓഫീസർമാർ ഉൾപ്പെട്ട കോർഗ്രൂപ്പ് രൂപീകരിക്കണമെന്ന് കമ്മറ്റി നിർദ്ദേശിച്ചു

ജെ പി പ്രതിനിധി സംഘം ഇന്നലെ രാത്രി ഗവർണറെ കണ്ട് അഭ്യർത്ഥിച്ചതിന് പിന്നാലെയാണ് വിശ്വാസവോട്ടെടുപ്പ് നടത്താൻ തീരുമാനമായത്

അരുണാചൽപ്രദേശ് ഗ്രാമ വികസന മന്ത്രി ഹോൻചുൻ ഗാൻഡം സെമിനാർ ഉദ്ഘാടനം ചെയ്തു

ഉപഭോക്താക്കളുടെ നൃായമായ ആവശൃങ്ങൾ ഉറപ്പുവരുത്താനും പരാതികൾ പരിഹരിക്കാനും ഗവൺമെൻ്റ് നിരവധി നടപടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്

ഉപഭോക്താക്കളുടെ പരാതികളിൽ അടിയന്തര പ്പരിഹാരം കാണാൻ ഈ നിയമത്തിന് കഴിഞ്ഞിട്ടുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഇന്ന് മുതൽ വാഹനങ്ങൾക്ക് കടന്നു പോകാം

എൽ മത്സരങ്ങൾ വെട്ടിച്ചുരുക്കേണ്ടി വരുമെന്ന് ബി സി സി ഐ പ്രസിഡന്റ് സൌരവ് ഗാംഗുലി